ഘട്ടങ്ങളിലേക്കുള്ള വോട്ടെടുപ്പിന്റെ പ്രചാരണം ഊർജ്ജിതം അണികൾക്ക് ആവേശം പകർന്ന് മുതിർന്ന പാർട്ടി നേതാക്കൾ തെരെഞ്ഞെടുപ്പ് റാലികളിൽ

ഉപരാഷ്ട്രപതി എം

മുൻ അഡീഷണൽ ചീഫ് സെക്രട്ടറിയും എഴുത്തുകാരനും പ്രഭാഷകനുമായ ഡോ

എല്ലിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെ ഡൽഹി ക്യാപിറ്റൽസിന് ഏഴ് വിക്കറ്റ് ജയം

ഒന്നാംഘട്ട വോട്ടെടുപ്പ് പൂർത്തിയായതോടെ ശേഷിക്കുന്ന ആറ് ഘട്ടങ്ങളിൽ പരമാവധി മുൻതൂക്കം നേടാനുള്ള ശ്രമത്തിലാണ് രാഷ്ട്രീയ പാർട്ടികളും മുന്നണികളും വിശദാംശങ്ങളുമായി ഗോപകുമാർ

ആരോപണ പ്രത്യാരോപണ്ടങ്ങളുമായി പ്രധാന രാഷ്ട്രീയ കക്ഷികൾ രംഗത്തുണ്ട് പ്രിഗ്മന്ത്രി നരേന്ദ്രമോദി ഇന്ന് തമിഴ്നാട്ടിലും കർണാടകത്തിലും വിവിധ തെരഞ്ഞെടുപ്പ് റാലികളെ അഭിസംബോധന്യ പ്പെയ്യു് തേനിയിലും രാമനാഥപുരത്തും തെരഞ്ഞെടുപ്പ് റാലികളിൽ പങ്കെടുത്തശേഷം പ്രധാനമന്ത്രി മാംഗ്ലൂർ ബ്ര്ഗുലൂരു എന്നിവിടങ്ങളിലെ പാർട്ടി സ്ഥാനാർത്ഥികളുടെ പ്രിച്ചാരണ പരിപാടികളിലും പങ്കെടുക്കും

ജെ

അധ്യക്ഷൻ ഇന്ന് ഉച്ചയ്ക്കുശേഷം തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ പങ്കെടുക്കാനായി ഉത്തർപ്രദേശിൽ എത്തും

എന്നാൽ പല പോളിംഗ് കേന്ദ്രങ്ങളിൽ നിന്നും ഉദ്യോഗസ്ഥർ ഇനിയും മടങ്ങിയെ ത്താനിരിക്കേ പോളിംഗ് ശതമാനം വർദ്ധിക്കാനാണ് സാധൃത

പാർട്ടിയുടെ സിറ്റിംഗ് എം

യായ ജ്യോതിരാദിത്യ സിന്ധ്യ മധ്യപ്രദേശിലെ ഗുണാ മണ്ഡലത്തിൽ നിന്നും വീണ്ടും ജനവിധി തേടും മുതിർന്ന നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ മനീഷ് തിവാരി പഞ്ചാബിലെ അനന്ത്പൂർ സാഹിബിൽ നിന്നും മുൻ നിയമസഭാംഗം കേവൽ സിങ് ധില്ലൻ സാംഗ്രൂരിൽ നിന്നും മത്സരിക്കും മധ്യപ്രദേശിലെ വിധിഷ മണ്ഡലത്തിൽ ശൈലേന്ദ്ര പട്ടേലാണ് പാർട്ടി സ്ഥാനാർത്ഥി സംസ്ഥാനത്തെ മറ്റൊരു മണ്ഡലമായ രാജ്ഗർഇൽ മോനാ സുസ്താനി മത്സരിക്കും

എൽ എ യായ ബാൽജിന്ദർ കൌർ പഞ്ചാ ബിലെ ബത്തിൻഡ ലോക്സഭാ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാ കുമെന്ന് ആം ആദ്മി പാർട്ടി

ന്യൂഡൽഹിയിൽ അന്താരാഷ്ട്ര വിവേകാനന്ദ ഫൌണ്ടേഷൻ സംഘടിപ്പിച്ചു ചടങ്ങിൽ സംസാരിക്കുയായിരുന്നു ശ്രീമതി നിർമ്മലാ സീതാരാമൻ

ജെ

അധ്യക്ഷൻ അമിത്ഷായുടെ അനുമോദനം പുരസ്ക്കാര ലബ്ധി ഓരോ ഇന്ത്യക്കാരനും അഭിമാന മുഹൂർത്തമാണെന്ന് ശ്രീ അമിത്ഷാ അഭിപ്രായപ്പെട്ടു

യുദ്ധകപ്പൽ നിർമ്മാണ രംഗത്ത് ഡിസൈനർമാരും ഉപയോക്താ ക്കളും തമ്മിൽ നിരന്തരം സമ്പർക്കം പുലർത്തുന്നതിന് കേന്ദ്രം ഉപ കരിക്കുമെന്ന് നാവികസേനാ മേധാവി പറഞ്ഞു

ബാബുപോൾ അന്തരിച്ചു

ഒരാഴ്ചയായി അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്ന അദ്ദേഹം ഇന്ന് പുലർച്ചെയാണ് വിടവാങ്ങിയത്

നാളെ വൈകിട്ട് പെരുമ്പാവൂരിനടുത്ത് കുറുപ്പുംപടി യാക്കോബ പള്ളിയിൽ ആണ് സംസ്ക്കാര ചടങ്ങുകൾ

മികച്ച ഭരണകർത്താവായും എഴുത്തുകാരനായും പ്രഭാഷകനായും തിളങ്ങിയ ബാബുപോൾ നാല് പതിറ്റാണ്ടിലേറെ സംസ്ഥാനത്തിന്റെ സാംസ്ക്കാരിക മേഖലയിൽ നിറഞ്ഞുനിന്നു

പൌലോസ് കോർഎപ്പിസ്കോപ്പയുടെയും മേരി പോളിന്റെയും മകനായി ജനിച്ച ബാബുപോൾ തിരുവിത്രാംകൂർ മഹാരാജാവിന്റെയും സർവ്വകലാശാലയിൽ കേന്ദ്ര സർക്കാരിന്റെ സ്കോളർഷിപ്പോടെയുമാണ് പഠനം പൂർത്തിയാക്കിയത്

യ്ക്ക് മൂന്നാം റാങ്കും എം

സിവിൽ എഞ്ചിനീയറിംഗിൽ ബിരുദം നേടിയ അദ്ദേഹം പ്രതിരോധ ശാസ്ത്രത്തിലും വേദശാസ്ത്രത്തിലും മലയാള സാഹിതൃത്തിലും ഉപരിപഠനം നടത്തി എഞ്ചിനീയറായി ഐ

അഡീഷണൽ ചീഫ് സെക്രട്ടറി തദ്ദേശസ്വയംഭരണ ഓംബുഡ്സ്മാൻ അംഗം കൊച്ചിൻ പോർട്ട് ട്രസ്റ്റ് ചെയർമാൻ കേരള സർവ്വകലാശാല വൈസ് ചാൻസലർ തുടങ്ങിയ നിർണ്ണായക പദവികളും സംസ്ഥാനത്തെ വൈദ്യുതി പദ്ധതിയായ ഇടുക്കി ജലവൈദ്യുത പദ്ധതി യാഥാർത്ഥമായത് ബാബുപോളിന്റെ നേതൃത്വത്തിലായിരുന്നു

പത്രങ്ങളിലും ആനുകാലികങ്ങളിലും സ്ഥിരം പംക്തികൾ കൈകാര്യം ചെയ്തിരുന്നു

പഞ്ചാബ് ഹരിയാന ചണ്ഡിഗഢ് എന്നിവിട ങ്ങളിൽ അത്യാഘോഷ പൂർവ്വമായാണ് ബൈശാഖി കൊണ്ടാടുന്ന ത്

എൽ ൽ ഇന്നലെ കൊൽക്കത്തയിലെ ഏദൻ ഗാർഡൻസിൽ ഡൽഹി ക്യാപിറ്റൽസ് ക്ടൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ ഏഴ് വിക്കറ്റുകൾക്ക് പാര്യജിയപ്പെടുത്തി

രാത്രി എട്ടിന് മൊഹാലിയിൽ നടക്കുന്ന മറ്റൊരു മത്സരത്തിൽ കിംഗ്സ് ഇലവൻ പഞ്ചാബ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെ നേരിടും

സിന്ധു സിംഗപ്പൂർ ഓപ്പൺ വിമൺസ് ബാഡ്മിന്റന്റെ സെമി ഫൈനലിൽ ഇന്ന് ജപ്പാന്റെ രണ്ടാം സീഡ്സ് നൊവോമി ഒക്കുഹാരയെ നേരിടും ഇന്നലെ നടന്ന കാർട്ടറിൽ സിന്ധു ചൈനയുടെ കായി യാന്യാനിനെയും ഒക്കുഹര സൈന നെഹ്വാളിനേയുമാണ് പരാജയപ്പെടുത്തിയത് പുരുഷൻമാരുടെ സിംഗിൽസ് ക്വാർട്ടറിൽ തായ്വാന്റെ ചോ തിയാൻ ചെൻ ഇൻഡ്യൻ താരം സമീർ വർമ്മയെ പരാജയപ്പെടുത്തി